ദേശീയ സെമിനാർ ഉച്ചയ്ക്കുശേഷം ദേശീയ പുകയില നിയന്ത്രണ നേതൃത്വ പരിപാടിക്ക് ഇന്ന് ഗോവയിൽ തുടക്കമാകും കാസർക്കോട് ഉപ്പളയിൽ സി പി ഐ എം പ്രവർത്തകൻ കുത്തേറ്റ്

ഗവർണർ പി സദാശിവം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി മാർ പ്രതിപക്ഷനേതാവ് തുടങ്ങിയവർ നിയമസഭാ സമുച്ചയത്തിലെ ചട ങ്ങിൽ സംസാരിക്കും ഉച്ചകഴിഞ്ഞ് പട്ടികജാതി പട്ടിക വർഗ്ഗങ്ങളുടെ ശാക്തീകരണം നേരിടുന്ന വെല്ലുവിളികൾ എന്ന ദേശീയ സെമിനാർ നടക്കും വൈകിട്ട് കൊച്ചിയിലേക്ക് തിരിക്കുന്ന രാഷ്ട്രപതി നാളെ രാവിലെ ബൊൾഗാട്ടി പാലസിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായും ജഡ്ജിമാരു മായും കൂടിക്കാഴ്ച നടത്തും തുടർന്ന് തൃശൂരിലേക്ക് പോകുന്ന രാഷ്ട്ര പതി സെന്റ് തോമസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാ ടനം ചെയ്യും തൃശൂരിൽ നിന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം ഗുരുവായൂരിലെത്തും ക്ഷേത്ര ദർശനത്തിനുശേഷം കൊച്ചിയിലെത്തുന്ന രാഷ്ട്രപതി രണ്ടേമുക്കാ ലോടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിക്ക് തിരിച്ചുപോകും രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് തിരുവനന്തപുരത്ത് ഇന്നും നാളെയും ഗതാഗത നിയ ന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിയമസഭാ മന്ദിരത്തിൽ നടക്കുന്ന ചട ങ്ങിനോടനുബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് പാർക്കിംഗ് ക്രമീകരണ ങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്

നെത്തിയ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് തിരുവനന്തപുരത്ത് സ്നേഹോ ഷ്മള വരവേൽപ്പ് നൽകി വൈകിട്ട് അഞ്ചോടെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തലസ്ഥാനത്തെത്തിയ രാഷ്ട്രപതിയെ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു

ഴ്നാട് മുൻ മുഖ്യമന്ത്രിയും ഡി എം കെ നേതാവുമായ എം കരുണാനി ധിയെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്നലെ സന്ദർശിച്ചു മുതിർന്ന രാഷ്ട്രീയ നേതാവായ കരുണാനിധി ഉടൻ ആരോഗ്യം വീണ്ടെടുക്കട്ടെയെന്ന് രാഷ്ട്ര പതി പിന്നീട് ട്വിറ്ററിൽ ആശംസിച്ചു

ദേശീയ് പുകയില നിയന്ത്രണ നേതൃത്വ പരിപാടി ഇന്ന് ഗോവ യിൽ ആരംഭിക്കും അഞ്ചു ദിവസത്തെ പരിപാടിയിൽ സിഗരറ്റടക്കം പുക യില ഉല്പന്നങ്ങളുടെ നിയന്ത്രണത്തിനാവശ്യമായ നിയമങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്ന കാര്യത്തിൽ ചർച്ച നടത്തും

ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന യോഗത്തിൽ ആരോഗ്യ തൊഴിൽ മന്ത്രാലയങ്ങളിലെ മുതിർന്ന ഉദ്യോഗ സ്ഥരും പങ്കെടുക്കും തെക്കൻഗോവയിലെ മജോർദ വില്ലേജിലെ റിസോർട്ടി ലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ഉച്ചയ്ക്കുശേഷം മഞ്ചേശ്വരം താലൂക്കിൽ സി പി ഐ എം ഹർത്താ ലിന് ആഹ്വാനം ചെയ്തു

കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഋഷികേശ് റോയ് മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും രാജ്ഭവനിൽ രാവിലെ ഗവർണർ ജസ്റ്റിസ് പി

സൂപ്രീം കോടതി ജഡ്ജിമാരായി നിയമിതരായ കെ

ജോസ ഫ് ഇന്ദിരാ ബാനർജി വിനീത് സരൺ എന്നിവർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും രാവിലെ പത്തരയ്ക്ക് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര പുതിയ ജസ്റ്റിസുമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും ബാർ കോഴ കേസ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും

മാണിയെ കുറ്റ വിമുക്തനാക്കി വിജിലൻസ് നൽകിയ റിപ്പോർട്ടിനെതിരെ മുഖ്യ സാക്ഷി ഡോ ബിജു രമേശ് നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത് ഇന്നത്തോട് കൂടി ബാർ കോഴ കേസിലെ പ്രതിഷേധ ഹർജികളുടെ വാദം പൂർത്തിയാകും

കെ എസ് ആർ ടി സിയിലെ സംയുക്ത ട്രേഡ് യൂണിയനും സ്ഥകാര്യ ബസ് തൊഴിലാളി സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കും ഓട്ടോ ടാക്സി ചരക്ക് വാഹനങ്ങൾ എന്നിവയും പണിമുടക്കുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു

പാൽ പത്രം ആശുപത്രി എന്നിവയടക്കം അവശ്യസേവനങ്ങളെയും പാക്കേജ് ടൂർ വാഹനങ്ങളെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

റൈഫിളിൽ പാലക്കാടിന്റെ പ്രതി ഭയും പിസ്റ്റൾ വിഭാഗത്തിൽ എറണാകുളത്തിന്റെ നവീനുമാണ് വൃക്തിഗത ചാമ്പ്യന്മാർ

മായ ഖാദിക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു

രാമകൃഷ്ണൻ പറഞ്ഞു

ഭാഗം കടപ്ര വില്ലേജുകളെ പ്രളയ ദുരിത ബാധിത പ്രദേശങ്ങളായി സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചു

സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പറഞ്ഞു

ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കാസർക്കോട് ജില്ലയിൽ ആദ്യമായെത്തുന്ന പി

ശ്രീധരൻപി ള്ളയ്ക്ക് കാസർകോട് ജില്ലാ കമ്മിറ്റി ഇന്ന് സ്ഥീകരണം നൽകും രാവിലെ കാസർക്കോട്ടെത്തുന്ന അദ്ദേഹത്തെ ജില്ലാ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് റെയിൽവെ സ്റ്റേഷനിൽ സ്വീകരിക്കും വൈകിട്ട് മുൻസിപ്പൽ ടൌൺഹാളിൽ സ്വീകരണ പൊതുയോഗത്തിൽ ശ്രീധരൻപിള്ള സംസാരി ക്കും മലപ്പുറം അരീക്കോട് ഊർങ്ങാട്ടിരിയിലും വാഴയൂരിലെ തിരുത്തി യാട്ടുമായി നാലുപേർ ചാലിയാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു ഒരാളുടെ മൃത ദേഹം കണ്ടെടുത്തു മൂന്നുപേർക്കായി തിരച്ചിൽ തുടരുകയാണ് തിരു ത്തിയാട് ഭാഗത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ കോഴിക്കോട് പെരുമണ്ണ സ്വദേശികളായ സഹോദരങ്ങളിൽ സബ്ഹാന്റെ മൃതദേഹം കണ്ടെടുത്തു

ഊർങ്ങാട്ടിരിയിൽ ബംഗാൾ സ്വദേ ശികളായ ബപ്പി കാഞ്ചൻ എന്നിവരെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ത്

കുടുംബത്തിലെ മൂന്നുപേർക്കായി തിരച്ചിൽ ഇന്നും തുടരും ഗൃഹനാഥൻ ആനപ്പാറ കല്ലുരുട്ടിപ്പറമ്പിൽ നാരായണൻകുട്ടിയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു

ഹൈദരാബാദിലേക്ക് വിനോദയാത്ര പോയ കുടുംബം സഞ്ച രിച്ച വാഹനം കർണൂലിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ ശരീരങ്ങൾ രാവിലെ കൊടിഞ്ഞിപ്പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കും മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി കൊടിഞ്ഞി കെ

തങ്ങളുടെ മകൻ മുഹ മ്മദ് മനാഫ് തങ്ങൾ രണ്ടുവയസ്സുകാരി ആയിഷ എന്നിവരാണ് മരിച്ചത്

ഇടുക്കി തൊടുപുഴയ്ക്കടുത്ത് മുണ്ടൻമുടി കൂട്ടക്കൊലയുടെ പിന്നിൽ മന്ത്രവാദ തട്ടിപ്പാണെന്ന് പൊലീസ് സ്ഥിരീകരിച്ചു നാലംഗ കുടുംബത്തെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവം മന്ത്രവാദം ആഭിചാരം എന്നിവയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പൊലീസിന്റെ സ്ഥിരീകരണം കേസിൽ കസ്റ്റഡിയിലായ പ്രതികൾക്ക് കൊല്ലപ്പെട്ട കൃഷ്ണനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഇടുക്കി ജില്ലാ പൊലീസ് മേധാവി അറിയിച്ചു പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന ലഭിച്ചിരുന്നു

സ്വദേശിക്ക് പരിക്കേറ്റു പാണത്തൂരിലെ നിശാന്തിനാണ് പരിക്കേറ്റത്

പരിക്കേറ്റ നിശാന്തിനെ പരി യാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

പുതിയ പ്ലാന്റുകൾ പ്രവർത്തനക്ഷമമാകുന്നതോടെ ജനവാസകേന്ദ്രത്തിനു സമീപത്തെ പ്പാന്റിന്റെ പ്രവർത്തനം നിർത്താൻ സാധിക്കുമെന്ന് അക്കാദമി അധികൃതർ അറിയിച്ചു

ക്കൾക്കായി ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ മുഴുവൻ ജില്ലകളിലും വിവാഹപൂർവ്വ കൌൺസിലിംഗ് സെന്ററുകൾ ആരംഭിക്കും